നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇന്ന്

ഇന്ത്യയും അമേരിക്കിയുക് ആഹ്വാനം ചെയ്തു

അതിവേഗ പ്രത്യേക കോടതികൾ സ്ഥാപിക്കും

കളിക്കാരൻ പാറ്റ് കമ്മിൻസിനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിലെടുത്തു

അഞ്ച് നക്സൽ ബാധിത മേഖലയിൽ രാവിലെ ഏഴ് മണി മുതൽ മൂന്ന് മണി വരെയാണ് വോട്ടെടുപ്പ് നടക്കുക

സമാധാനപരമായ വോട്ടെടുപ്പിനായി വിപുലമായ സുരക്ഷാ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തി കേന്ദ്ര അർദ്ധസൈനിക വിഭാഗത്തെയും സംസ്ഥാന സായുധ സേനയിലെ നാൽപ്പത്തിയോരായിരം പേരെയും മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്

ഗ്ലാന്ധിയൻ ചിന്തകളും ആദർശങ്ങളും ജീവിതത്തിൽ സ്വാംശീകരിക്കാൻ ക്ക്ലാ പൌരന്മാരും തയ്യാറാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്പുറഞ്ഞു പൊതുജന പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട ഗാന്ധിയൻ ചിന്ത്കുട്ള ഉൾക്കൊള്ളിച്ച് പ്രത്യേക അനുസ്മരണ പരിപാടിക്ക് രൂപം നൽകാനുള്ള നിർദ്ദേശങ്ങൾ ഏറെ സഹായകരമായതായും പ്രധാനമന്ത്രി പറഞ്ഞു

എല്ലും അതിന്റെ സ്ഥാപകരും പ്രതിസന്ധിയിലുള്ള പഞ്ചാബ് മഹാരാഷ്ട്ര കോ ഓപ്പറേറ്റീവ് ബാങ്കിൽ വായ്പ തിരിച്ചടയ്ക്കണമെന്ന് ബോംബെ ഹൈക്കോടതി ഉത്തരവിട്ടു

എല്ലിന്റെ പ്രൊമോട്ടർമാരായ രാകേഷ് വാധ്വാന്റെയും സാരംഗ് വാധ്പാന്റെയും സ്വത്തുവകകൾ എത്രയും വേഗം വിറ്റഴിച്ച് നിക്ഷേപകരുടെ പണം തിരികെ നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടു അഭിഭാഷകനായ സരോഷ് ദമനിയ സമർപ്പിച്ച പൊതുതാത്പര്യ ഹർജിയിലാണ് ജസ്റ്റിസുമാരായ രഞ്ജിത് മോറെ എസ് പി തവാഡെ എന്നിവരടങ്ങിയ ഡിവിഷൻ ബഞ്ചിന്റെ ഉത്തരവ് രാകേഷ് വാധ്വാനും സാരംഗ് വാധ്വാനും ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്

പാർലമെന്റിന്റെ ഇക്കഴിഞ്ഞ ശീതകാല സമ്മേളനത്തിലാണ് കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ലയനം സംബന്ധിച്ച് ബില്ല് പാസ്സാക്കിയത് മെച്ചപ്പെട്ട ഭരണനിർവ്വഹണത്തിനായാണ് ലയനം

ഡൽഹിയിലെ ബ്ദുരാരിയിൽ ബിജെപി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായ്ടിരുന്നു അദ്ദേഹം

രാജ്യത്തിന്റെ വികസനം ആഗ്രഹിക്കുന്നവരും അതിനെ എതിർക്കുന്നവരും തമ്മിലുള്ള പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ശ്രീ ജാവദേക്കർ കൂട്ടിച്ചേർത്തു

അക്രമം അനുവദിക്കില്ലെന്നും അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സംസ്ഥാനത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇന്നലെ നിരവധി പേരാണ് പ്രതിഷേധ പ്രകടനങ്ങളിൽ പങ്കെടുത്തതെന്ന് ആകാശവാണി ലേഖകൻ അറിയിക്കുന്നു

തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക ദിശാനിർണ്ണയ സംവിധാനമുള്ള പിനാക്ക അതീവ കൃത്യതയോടെ ലക്ഷ്യം കണ്ടതായി ഡി ആർ ഡി ഒ വൃത്തങ്ങൾ അറിയിച്ചു

എസ് ലഷ്കർ ഇ ത്യ്ബ ജെയ്ഷെ ഇ മൊഹമ്മദ് ഹക്കാനി ശൃംഖല ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഡി കമ്പനി ഉൾപ്പെടെയുള്ള ഭീകരവാദ സംഘടനകൾക്ക് എതിരെയുള്ള കൂട്ടായ പ്രവർത്തനമാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത്

എസ് ടു പ്ലസ് ട്ടൂമിന്ത്രിതല യോഗത്തിന് ശേഷം സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചത്താണ് ഇക്കാര്യം

ജെയ്ഷെ ഇ മൊഹമ്മദ് നേതാവ് മസൂദ് അസ്ഹർ ഉൾപ്പെടെ യുള്ളവരെ ഭീകരരായി ഐക്യരാഷ്ട്ര സഭ പ്രഖ്യാപിക്കുന്ന തിൽ അമേരിക്ക നൽകിയ പിന്തുണയെ ഇന്ത്യ പ്രശംസിച്ചു തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ കൈകോർക്കുന്നതിന് ഇന്ത്യൻ നിയമത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങളെ അമേരിക്ക സ്വാഗതം ചെയ്തു രാജ്യരക്ഷാ മന്ത്രി രാജ് നാഥ് സിംഗ് വിദേശകാര്യ മന്ത്രി എസ്

സി

ഐക്യരാഷ്ട്ര സുരക്ഷാ കൌൺസിലിലെ ഇന്ത്യയുടെ സ്ഥിര അംഗത്വത്തിനുള്ള ഉറച്ച പിന്തുണയും ആണവ വിതരണ സംഘങ്ങളിൽ ഇന്ത്യയുടെ പ്രവേശനവും യു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കഴിഞ്ഞ മാസം ഹൈദരാബാദിൽ വനിതാ ഡോക്ടർ ബലാൽസംഗത്തിന് ഇരയായി കൊല ചെയ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണിത് അഡീഷണൽ ഡിസ്ട്രിക്ട് ആന്റ് സെഷൻസ് ജഡ്ജിന്റെ പദവിയിലുള്ള അതിവേഗ കോടതികൾ തൽക്കാലം ഒരു കൊല്ലം പ്രവർത്തിക്കാനാണ് തീരുമാനം

ലുബ്യങ്ക സ്കയറിൽ സുരക്ഷാ സേവന ആസ്ഥാനത്ത് ഒരു ആയുധധാരി ആണ്ട്രവെടിയുതിർത്തത് റഷ്യ ഇന്ന് സുരക്ഷാ സേവന ദിനം ആചരിക്കാനിരിക്കെയ്യാണ്ട് ഇന്നലെ വെടിവയ്പ്പ് ഉണ്ടായത്

ശ്രീലങ്കൻ നാവികാസ്ഥാനത്ത്ാ്യിരുന്നു കൂടിക്കാഴ്ച

ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ക്യാപ്റ്റൻ യോൺ മോർഗൻ കോൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടി അടുത്ത സീസണിൽ കളിക്കും

കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ കയ്യിൽ നിന്നും റോബിൻ ഉത്തപ്പയെ രാജസ്ഥാൻ റോയൽസ് മൂന്ന് കോടിക്കാണ് വാങ്ങിയത്

ഡെയ്ൽ സ്റ്റൈയ്ൻ ആദം സാംബ കൊളിൻ ഡി ഗ്രാന്റ് ഹോം എന്നിവരെ ആരും ലേലത്തിൽ വാങ്ങിയില്ല

തായ്ലന്റായിരുന്നു ടൂർണമെന്റില്ല മൂന്നാമത്തെ ടീം